പ്രധാനമന്ത്രിയുടെ പി എം കെയേഴ്സ് ഫണ്ടിലൂടെ സമാഹരിച്ച പണം ദേശീയ ദുരിതാശ്ചാസ നിധിയിലേക്ക് മാറ്റണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി വിധി കോൺഗ്രസ് പ്രചാരണ ത്തിന് തിരിച്ചടിയെന്ന് ബി ജെ

എം കെയേഴ്സ് ഫണ്ടിലൂടെ കോവിഡ് പ്രതി രോധത്തിനായി ശേഖരിച്ച പണം ദേശീയ ദുരിതാശ്വാസ നിധിയിലേ ക്ക് മാറ്റണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി പിഎം കെയേഴ്സ് ഫണ്ടിനെതിരെ സ്വകാര്യസംഘടന നൽകിയ ഒരു ഹർജിയിലാണ് സുപ്രിം കോടതിയുടെ വിധി ഉണ്ടായത് വിശദവിവരങ്ങളുമായി സുരേഷ്

ജെ

കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നവീന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം ഗവേഷകരോടും ശാസ്ത്രജ്ഞ രോടും ആവശ്യപ്പെട്ടു

ഐ ടി മദ്രാസ് ഒന്നാമതെത്തീ

ഐ ടി ബോംബെ ഐ ഐ

സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ ഒഡ്രീഷ്യിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയാണ് മുന്നിൽ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ് മഹ്ാരാഷ്ട്രയിലെ പൂനെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ഒന്നാമതെത്തി

കോവിഡ് ഉൾപ്പെടെയുള്ള പകർച്ച വ്യാധികളുടെ കാലമാണി തെന്നും അതിനാൽ ശരിയായ മുൻകരുതലുകൾ ആവശ്യമാ ണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മ മായി നിരീക്ഷിക്കുകയും ദുരിതബാധിതർക്ക് സഹായം ഉറപ്പാക്കു കയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു അതേസമയം വിവിധ ഉത്തരന്ത്യേൻ സംസ്ഥാനങ്ങളിൽ മഴ തുടരുകയാണ്

മരണനിരക്കും കുറയുന്നുണ്ട്

ശ്രീ അമിത് ഷായുടെ ആരോഗ്യനില തൃപ്തി കരമാണെന്നും അദ്ദേഹം ആശുപത്രിയിലിരുന്ന് ഔദ്യോഗിക ജോലികൾ നിർവഹിക്കുന്നുണ്ടെന്നുംഎയിംസ് അധികൃതർ അറി യിച്ചു

വോയിസ് രാജ്യത്തിന്റെ വാർഷിക ശുചിത്വ സർവേയുടെ അഞ്ചാം പതിപ്പാണിത്

സച്ഛ് ഭൂാരത് നഗരദൌത്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾ സ്പ്തഗ്രഹികൾ ശുചീ കരണജീവനക്കാർ എന്നിവരുമായ്ടി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ആശയവിനിമ്യാ് നടത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നല്ലതണ്ണിയാറിലെ സിമന്റ് പാലം ഭാഗത്ത് നിന്നാണ് ഇമൃതദേഹങ്ങൾ കണ്ടെത്തിയത്

ആത്മ നിർഭർ ഭാരതുമായി ബന്ധപ്പെട്ട ഭവന നിർമ്മാണമേഖല സംബന്ധിച്ച വെബ്നാറിനെ അഭിസം ബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിനോടും മറ്റ് ഉരുക്കു നിർമാ താക്കളോടും അതിന് നേതൃത്വം നൽകാനും നൂതന ആശയങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു നടപ്പാക്കാവുന്ന മാതൃകകൾ ലഭിച്ചുകഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിലുടനീളം ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭവന നിർമ്മാണ്ട് നഗരവികസന വകുപ്പ് സഹകരിക്കുമെന്ന് കേന്ദ്ര മന്ത്രി പുറഞ്ഞു്

എസ് സി മാതൃകയിൽ രണ്ടു ഘട്ടങ്ങളായാണ് പരീക്ഷ നടത്തുകയെന്ന് പി എസ് സി ചെയർമാൻ എം

ആദൃഘട്ടത്തിൽ മികവ് പ്രകടിപ്പിച്ചവർ മാത്രമായിരിക്കും രണ്ടാംഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു

രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തരകാർഷികോൽപാദനത്തിലും വർധനയുണ്ട്

ശ്രീ ഗുണവർധനെയുമായി നടത്തിയ ടെലഫോൺ സംഭാഷ ണത്തിലാണ് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചത്